നടപടികൾ കേന്ദ്രസർക്കാർ തുടരുന്നു ഇന്ത്യയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങൾ

ആവശ്യമില്ലെന്ന് ഹൈക്കോടതി

ബാംഗ്ലൂരിനെ നേരിടുന്നു

ഇന്ത്യയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങൾ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മൈത്രി

മധ്യപ്രദേശ് ഉത്തർ പ്രദേശ് രാജസ്ഥാൻ ഡൽഹി ഗുജറാത് എന്നീ സംസ്ഥാനങ്ങളിലെ വിതരണക്കാരിലേക്ക് ഇവ എത്തിക്കാൻ ഗതാഗത മന്ത്രാലയം നടപടി സ്വീകരിച്ചു

അമേരിക്ക ഫ്രാൻസ് ജർമനി ഇസ്രയേൽ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ട മെഡിക്കൽ ഉപകരണ ങ്ങളും വാക്സിൻ നിർമാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തു ക്കളും കൈമാറുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാന മന്ത്രി നരേന്ദ്ര മോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഉറപ്പു നൽകി എന്നാൽ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്

രണ്ടരലക്ഷത്തിലേറെപ്പേർ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടി

കോടതികൾക്ക് നിശബ്ദ സാക്ഷികളായി തുടരാനാവില്ലെന്നും സുപ്രധാന ചുമതലകൾ നിർവ്വഹിക്കാനുണ്ടെന്നും ജസ്റ്റീസ് ഡി

പ്രഹൈക്കോടതികൾക്ക് അധികാര പരിധി സംബന്ധിച്ച തടസമുണ്ടായാൽ സുപ്രീംകോടതി സഹായം ന്റൽകുമെന്നും മൂന്നംഗ ബഞ്ച് വ്യക്തമാക്കി

കോഴിക്കോട് എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

ഓക്സിജൻ പ്രതിസന്ധി മുൻകൂട്ടിക്കണ്ട് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ നടത്തുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു പ്രധാന ആശുപത്രികളിലും സി

എൽ

സി കളിലും ഇ എസ്

ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം സംസ്ഥാനം നേരിടുന്ന വലിയ പ്രശ്നമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ ആരോഗ്യപ്രവർത്തകർ കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമാകാൻ മുന്നോട്ട് വർണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

തമിഴ്നാട് പുതുച്ചേരി പശ്ചിമബംഗാൾ അസം എന്നിവിടങ്ങളിലും കേരളത്തോടൊപ്പം മെയ് രണ്ടിനാണ് വോട്ടെണ്ണൽ

ഹൈക്കോടതി ഇക്കാര്യത്തിൽ സർക്കാരും തിരഞ്ഞെടുപ്പു കമ്മിഷനും സ്വീകരിച്ച മുൻകരുതൽ തൃപ്തികരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി

ഉത്തർ പ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലായാണ് ഇവ വിനൃസിച്ചിരി ക്കുന്നത്

കോവിഡിന്റെ രണ്ടാംതരംഗത്തെ തുടർന്ന് രാജ്യത്ത് രൂക്ഷമായ ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ജസ്റ്റീസ് ഡി

ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്

മറ്റ് പ്രശ്നങ്ങളില്ലാത്ത കോവിഡ് ്രരോഗികൾക്ക് ഡോക്ടർ നിർദേശിക്കുന്ന് അത്യാവശ്യ മരുന്നുകളും പൂർണ വിശ്രമവും ് കൊണ്ട് രോഗം മാറുന്നതാണെന്നും മന്ത്രി വൃക്തമാക്കി ഹോം ഐസൊലേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക്

അതിന് സൌകര്യമില്ലാത്തവർക്ക് ഡൊമിസിലിയറി കെയർസെന്റുകൾ ലഭ്യമാണ്

യുള്ള മുറി ഒഴിവാക്കണം വീട്ടിൽ സന്ദർശകരെ പൂർണമായും ഒഴിവാക്കേണ്ടതാണ് രോഗി മുറിക്ക് പുറത്തിറങ്ങാൻ പാടില്ല

ആഹാര സാധനങ്ങൾ ടിവി റിമോട്ട് ഫോൺ മുതലായ വസ്തുക്കൾ രോഗമില്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ പാടില്ല

ചൂടുള്ളതും പോഷക സമൃദ്ധവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം

വീട്ടിൽ കഴിയുന്നവർ സ്വയം നിരീക്ഷണം തുടരണം പൾസ് ഓക്സി മീറ്റർ വീട്ടിൽ കരുതുന്നത് നന്നായിരിക്കും

ശ്വാസം മുട്ടൽ നെഞ്ചുവേദന അമിതമായ ക്ഷീണം കഫത്തിൽ രക്തത്തിന്റെ അംശം തീവ്രമായ പനി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകരെ ഉടൻ ബന്ധപ്പെടേണ്ടതാണ്

വർദ്ധിക്കുന്ന കൊവിഡ് വ്യാപനത്തെ തുടർന്ന് ഹരിദാറിൽ സമഗ്രമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്

ഡൽഹിയിലെ ജി ടി

എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുന്നു ടോസ് നേടിയ ഡൽഹി ബാംഗ്ലൂരിനെ ബാറ്റിംഗിന് അയച്ചു

ആഗോള തലത്തിൽ വാക്സിൻ ലഭ്യതയിലെ തുല്യത ഉറപ്പാക്കാൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മേൽ സമ്മർദ്ദമേറിയ തോടെയാണ് പ്രഖ്യാപനം